സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾപ്രഖ്യാപിച്ചു

ജയസൂര്യയും സൌബിനും മികച്ച നടൻമാർ നിമിഷ സജയൻ മികച്ച നടി

മികച്ച നടി നിമിഷ സജയൻ ചിത്രം ചോല ഒരു കൂപ്രസിദ്ധ പയ്യൻ

മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം സുഡാനി ഫ്രം നൈജീരിയിലെ അഭിനയത്തിന് സാവിത്രി ശ്രീധരനും സരസ ബാലുശ്ശേരിയും പങ്കിട്ടു മികച്ച ഗായകൻ വിജയ് യേശുദാസ് ഗായിക ശ്രേയ ഘോഷാൽ സുഡാനി ഫ്രം നൈജീരിയ സംവിധാനം ചെയ്ത സക്കറിയക്കാണ് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം

ന്യൂസ് ഡെസ്ക് ആകാശവാണി